ങ്ങൾക്കായി രൂപീകരിച്ച ദ്ദേശ്ചീയ സമിതിയുടെ ആദ്യയോഗം പ്രധാനമന്ത്രിയുടെ അധൃക്ഷതയിൽ ഇന്ന് ചേരും

സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ അന്തിമഘട്ടത്തിൽ

മുംബൈ സിറ്റിയെ നേരിടും ഹോക്കിയിൽ ഇന്ന് ഇന്ത്യ ബ്രിട്ടൺ പോരാട്ടം

സഭ ഒരു മണി വരെ നിർത്തി വച്ചു

ഇന്ധനത്തിന്റെയും പാചകവാതകത്തിന്റെയും വില വർദ്ധനയ്ക്ക് എതിരെയായിരുന്നു പ്രതിപക്ഷ പ്രതിഷേധം

പാചകവാതക വിലയും എക്സൈസ് തീരുവയും കുത്തനേ ഉയർന്നതായും അദ്ദേഹം പറഞ്ഞു

വിഷയം അടിയന്തരമായി ചർച്ച ചെയ്യണമെന്നായിരുന്നു കോൺഗ്രസും മറ്റ് പ്രതിപക്ഷ പാർട്ടികളും ആവശ്യപ്പെട്ടത്

ഖാർഗെയുടെ എം അനുഭവസമ്പത്ത് സഭയുടെ പ്രവർത്തനങ്ങളെ പരിപോഷിപ്പിക്കുമെന്ന് ഉപരാഷ്ട്രപതി പറഞ്ഞു സഭയുടെ സുഗമമായ നടത്തിപ്പിൽ പ്രതിപക്ഷ കക്ഷി നേതാവ് സൂപ്രധാന പങ്ക് വഹിക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി

മൂന്നുപേർക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്തു

കേന്ദ്രമന്ത്രിമാർ മുഖ്യമന്ത്രിമാർ ഗവർണർമാർ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾ ബിജെപി ദേശീയ അദ്ധ്യക്ഷൻ ജെ പി നദ്ദ കോൺഗ്രസ് അദ്ധ്യക്ഷ സോണിയാഗാന്ധി എന്നിവർ സമിതി അംഗങ്ങളാണ് മുൻ രാഷ്ട്രപതി പ്രതിഭ പാട്ടീൽ ചീഫ് ജസ്റ്റിസ് എസ് എ ബോബ്ഡെ മുൻ പ്രധാനമന്ത്രിമാരായ എച്ച് ഡി ദേവഗൌഡ ഡോ

ത്രിപുരയിൽ ഇന്ത്യ ബംഗ്ലാദേശ് അതിർത്തിയിലൂടെ ഒഴുകുന്ന ഫെനി നദിയ്ക്ക് കുറുകെയാണ് ഐതി ് സേതു എന്ന പേരിൽ പാലം നിർമ്മിച്ചിരിക്കുന്നത് ഇന്ത്യൂ ് ബംഗ്ലാദേശ് ഉഭയകക്ഷി സൌഹൃദ ബന്ധത്തെയാണ് മൈത്രി എന്ന പേരിലൂടെ ഉയർത്തിക്കാട്ടുന്നത്

പുതിയ പാലം യാഥാർത്ഥ്യമാകുന്നതോടെ ബംഗ്ലാദേശിലെ ചിറ്റഗോംഗ് തുറമുഖത്തിലേക്കെത്താനുള്ള വടക്ക് കിഴക്കിന്റെ പ്രവേശന കവാടമായി ത്രിപുര മാറും

ഇടതുമുന്നണിയിലെ സീറ്റ് വിഭജനം പൂർത്തിയായി

പിഐ യുടെയും സ്ഥാനാർത്ഥി നിർണ്ണയത്തിൽ ഏറെക്കുറെ ധാരണയായെങ്കിലും അന്തിമ തീരുമാനത്തിലെത്താൻ ഏതാനും ദിവസങ്ങൾ കൂടി വേണ്ടിവരും ഘടകക്ഷികൾക്കിടയിലെ സീറ്റ് വിഭജന ചർച്ചകൾ യു ഡി

കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിപട്ടിക കേന്ദ്ര നേതൃത്വത്തിന് കൈമാറിയ ശേഷമായിരിക്കും അന്തിമ പ്രഖ്യാപനം

ഘടകകക്ഷികളുമായി സീറ്റ് ധാരുണ് ഏറ്റെക്കുറെ പൂർണ്ണമായി

കേരള ത്തിലും ചികിത്സയിലുള്ളവരുടെ എണ്ണം കുറഞ്ഞു വരികയാണ് കൂടുതൽ വിവരങ്ങളുമായി അക്ഷയ്

അതേസ്മ്യം കേരളത്തിൽ കോവിഡ് ചികിത്സയിലുള്ളവരുടെ എണ്ണം കൂറഞ്ഞു വരികയാണ്

ഇന്നലെ ആഫ്രിക്കൻ രാജൃങ്ങളായ ലൈബീരിയയ്ക്കും സോമാലിയയ്ക്കും ഇന്ത്യ കോവിഡ് വാക്സിൻ എത്തിച്ചിരുന്നു

വെബിനാറിനിടയിലാണ് നാഷണൽ സ്കൂൾ ഓഫ് ട്രോപ്പിക്കൽ മെഡിസിൻ മേധാവിയായ ഡോ

കോവിഡ് മഹാമാരിയെ പ്രതിരോധിക്കാനുളള ഇന്ത്യയുടെ പരിശ്രമം ലോകം വേണ്ട വിധത്തിൽ ചർച്ച ചെയ്യുന്നില്ലെന്നും അതിനാലാണ് ഇക്കാരൃം പറയുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു

ലിംഗസമത്വത്തിൽ അധിഷ്ഠിതമായ ഒരു ലോകം നിർമിക്കുക എന്നതാണ് വനിതാ ദിനാചരണത്തിലൂടെ ലക്ഷൃമിടുന്നത് സാമൂഹികസാംസ്കാരിക രാഷ്ട്രീയ മേഖലകളിൽ സ്ത്രീകൾ കൈവരിച്ച നേട്ടങ്ങളെ ആദരിക്കുന്നതും ദിനാചരണത്തിന്റെ ഉദ്ദേശമാണ് വെല്ലുവിളിയുടെ പാത തെരഞ്ഞെടുക്കൂ എന്നതാണ് ഈ വർഷത്തെ ദിനാചരണ പ്രമേയം രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയു മുൾപ്പെടെയുള്ള പ്രമുഖർ വനിതാ ദിനത്തിൽ ആശംസകൾ കൈമാറി സ്ത്രീ സുരക്ഷ ശാക്തീകരണം എന്നിവയ്ക്കായി അന്താരാഷ്ട്ര വനിതാ ദിനം സമർപ്പിക്കണമെന്നും വനിതകളുടെ പുരോഗതിക്ക് തടസ്സമാകുന്ന നയങ്ങൾ മാറ്റുന്നതിൽ അവരെ പിന്തുണയ്ക്കണമെന്നും രാഷ്ട്രപതി അഭ്യർത്ഥിച്ചു

രാജ്യത്തെ വനിതകൾ വിവിധ മേഖ്ലകളിൽ കൈവരിച്ച നേട്ടത്തിൽ രാഷ്ട്രം അഭിമാനം ക്ടൊള്ളുന്നതായും അദ്ദേഹം പറഞ്ഞു കേരളത്തിലും വനിതാ ദ്വന്ദാഘോഷത്തോടനുബന്ധിച്ച് വിപുലമായ പരിപാടികളാണ് സംഘടിപ്പിച്ചിരിക്കുന്നത്

അന്താരാഷ്ട്ര വനിതാ ദിനാചരണത്തിന്റെ ഭാഗമായാണ് ഈ ഇളവ്

ന്യൂഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിലായിരുന്നു ഉദ്ഘാടനം

സാമൂഹിക വിദ്യാഭ്യാസ ആത്മീയ മേഖലയിലെ അദ്ദേഹത്തിന്റെ സംഭാവനകൾ അതുല്യമാണെന്നും സ്വാമി ദയാനന്ദ സരസ്വതിയുടെ ജന്മദിനത്തിൽ രാഷ്ട്രപതി അറിയിച്ചു

എല്ലിൽ ഇന്ന് നടക്കുന്ന സെമി ഫൈനലിൽ മുംബൈ സിറ്റി ഗോവയെ നേരിടും

നാളെ നടക്കുന്ന സെമി ഫൈനലിൽ എ

യൂറോപ്യൻ പര്യടനത്തിന്റെ ഭാഗമായുളള നാലു മത്സര പരമ്പരയിലെ അവസാന മത്സരമാണ് ബെൽജിയത്തിലെ ആന്റ്വെർപ്പിൽ ഇന്ന് നടക്കുക ശനിയാഴ്ച നടന്ന മൂന്നാം മത്സരത്തിലെ വിജയത്തിലൂടെ ഇന്ത്യയും ബ്രിട്ടനും സമനിലയിലെത്തി

ലോക ഗുസ്തി ചാമ്പ്യൻഷിപ്പിൽ വെങ്കല മെഡൽ ജേതാവാണ് നിലവിൽ ബജ്റംഗ് പുനിയ